രാജേന്ദ്രബാബു കമ്മിറ്റി നിശ്ചയിച്ച ഫീസു കൾ അംഗീകരിക്കാനാവില്ലെന്ന് മാനേജുമെന്റുകൾ കരിപ്പൂരിൽ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് മുഖ്യമന്ത്രി പിണറായി

ആദ്യ ഹജ്ജ് വിമാനം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫ്ളാഗ് ഓഫ് ചെയ്യും

ആദ്യ സെമിയിൽ മറ്റന്നാൾ ഇന്തൃ ന്യൂസിലാൻഡിനെ നേരിടും

ബ്രസീൽ പെറുവിനെ നേരിടും

മുൻ വർഷത്തെ ഫീസിനേക്കാൾ പത്തുശതമാനം വർദ്ധനയാണ് രാജേന്ദ്രബാബു കമ്മിറ്റി നട പ്പാക്കിയത്

ആർ

ഇന്ന് രാവിലെ പത്തുവരെ ഓപ്ഷൻ നൽകാം അലോട്ട്മെന്റ് നാളെ വൈകിട്ട് നടക്കും ജസ്റ്റിസ് ആർ രാജേന്ദ്രബാബു കമ്മിറ്റി നിശ്ചയിച്ച ഫീസ് അംഗീകരിക്കാനാവില്ലെന്ന് സ്വാശ്രയ മാനേജുമെന്റുകൾ അറിയിച്ചു ഈ വിഷയത്തിൽ മറ്റന്നാൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ വെളിപ്പെടുത്തി ക്രിസ്ത്യൻ പ്രൊഫഷ ണൽ കോളേജ് മാനേജ്മെന്റ് തുടർ നടപടികൾ ഇന്ന് തീരു മാനിക്കും കഴിഞ്ഞ രണ്ടുവർഷത്തെ ഫീസ് ഘടനയും കോടതിയിൽ ചോദ്യം ചെയ്യാൻ സംഘടനകൾ തീരുമാനി ച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് കേരള ത്തിൽ ആരെയും അവഹേളിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

മതപരമായ വിശ്വാസത്തിന്റെ പേരിൽ ഒരു സേവനവും നിഷേധിക്കപ്പെടില്ലെന്നും വ്യക്തമാക്കി കരിപ്പൂരിൽ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഞ്ചുകോടി രൂപ ചെലവിൽ ഹജ്ജ് ഹൌസിൽ വനിതകൾക്കായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തു

മന്ത്രി ഡോ

ജീവിക്കാൻ പാടുപെടുന്നവരുടെമേൽ വിലക്കയറ്റം അടി ച്ചേൽപ്പിക്കുകയും അതിസമ്പന്നർക്ക് കോടികളുടെ സൌജന്യം സമ്മാനിക്കുകയും ചെയ്യുന്ന രീതി കേന്ദ്ര ഗവൺമെന്റ് തുട രുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി

പൊതു മേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് ഒരു ലക്ഷം കോടി രൂപ സമാഹ രിക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്

കണാരൻ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മുഖ്യമന്ത്രി കേരളത്തിലേക്ക് ഗുണനിലവാരമില്ലാത്ത പാൽ അനധികൃ തമായി എത്തിക്കുന്നത് തടയാൻ എല്ലാ അതിർത്തി ജില്ലക ളിലും പാൽ പരിശോധനാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജു അറിയിച്ചു കൊല്പം ആര്യങ്കാവ് പാൽ പരിശോ ധനാ ചെക്ക്പോസ്റ്റിന്റെ നവീകരിച്ചു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പാറശാലയിൽ പാൽ പരിശോധനാ ചെക്ക്പോസ്റ്റ് നിർമ്മാണ നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ധനവ കുപ്പിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ കേന്ദ്രം യാഥാർത്ഥ്യമാ കുമെന്നും മന്ത്രി പറഞ്ഞു കാലിത്തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പ് വരുത്തുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും മന്ത്രി അറിയിച്ചു

തദ്ദേശ വകുപ്പിന് കീഴിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ഏകീകരണം ഈ വർഷം നടപ്പാക്കുമെന്ന് മന്ത്രി എ

തദ്ദേശ സ്ഥാപനങ്ങളിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കമ്പ്യൂട്ടർവൽക്കരിച്ച് സുതാര്യത ഉറപ്പു വരുത്തും

പാലക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചാ യത്ത് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മയക്കുമരുന്ന് ദുരുപയോഗം ചെറുക്കാൻ കൂടുതൽ ഫല പ്രദമായ നിയമനിർമ്മാണത്തിന്റെ സാധ്യത പരിശോധി ക്കാൻ ഡി

എഫ് ഐ മറ്റന്നാൾ കൊച്ചിയിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ജെ ചെലമേശ്വർ ചടങ്ങിൽ വിഷയാവതരണം നട ത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി എ എ റഹീം കോഴിക്കോട്ട് പറഞ്ഞു സംസ്ഥാന നിയമ പരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയ കരട് ബില്ലുകൾ ഗവൺമെന്റിന് സമർപ്പിച്ചു മന്ത്രവാദവും ആഭിചാരവുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ തടയാനും ഇത്തരക്കാർക്ക് കർശന ശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലും നിപ വൈറസ് ബാധ തടയാൻ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റിന് വിജ്ഞാപനം പുറപ്പെടുവി ക്കാൻ അനുമതി നൽകുന്ന ബില്ലുമാണ് കൈമാറിയത്

നിലവിൽ പാൻ നമ്പർ ഉപയോഗിച്ചാണ് ഇത്തരം ഇടപാടുകൾ നടത്തുന്നത് ആധാറും പാനും സാമ്പത്തിക ഇടപാടുകൾക്ക് ഉപയോഗിക്കാമെന്ന ബജറ്റ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പിന്റെ വിശദീകരണം കർണ്ണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി

എൽ എ മാർ രാജി നൽകിയതോടെ ഗവൺമെന്റിന്റെ നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണ് കർണ്ണാടകയിലെ സഖ്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാ ണെന്ന് കോൺഗ്രസ് മുഖ്യ വക്താവ് രൺദീപ് സുർജേവാല ഡൽഹിയിൽ കുറ്റപ്പെടുത്തി

ലോകകപ്പ് ക്രിക്കറ്റ് ആദ്യ സെമിയിൽ ഇന്ത്യ മറ്റന്നാൾ ന്യൂസിലൻഡിനെ നേരിടും

മറ്റൊരു മത്സരത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക യോട് പരാജയപ്പെട്ടു

ബ്രസീൽ പെറുവിനെ നേരിടും

ചിലിയെ പരാജയപ്പെടുത്തി അർജന്റീന മൂന്നാം സ്ഥാനക്കാ രായി സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങലിലും യോഗ ക്ലാസ്സു കൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഇ

ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിപ്പിച്ച് പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികൾക്ക് ശ്രദ്ധ വളർത്തിയെ ടുക്കാൻ യോഗയിലൂടെ സാധിക്കുമെന്നും ഇതിനായി സ്കൂളുകളിൽ ഒരു മണിക്കൂർ യോഗ പരിശീലനം നൽകു മെന്നും മന്ത്രി പറഞ്ഞു മാലൂർ കാഞ്ഞിലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി മട്ടന്നൂർ നെല്യാട്ടേരി പടിക്കച്ചാൽ കോൺക്രീറ്റ് റോഡ് മറ്റൊരു ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ മുഴുവൻ എൽപി യുപി സ്കൂളുകളും വരുന്ന രണ്ടുമാസത്തിനുള്ളിൽ ഹൈടെക് ആക്കി മാറ്റുമെന്ന് മന്ത്രി സി രവീന്ദ്രനാഥ് പറഞ്ഞു കോഴിക്കോട് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽനിന്ന് എസ് എസ്

സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികളെ അനുമോ ദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പാലക്കാട് ചമ്പ്ര ക്കുളത്ത് പ്രളയക്കെടുതിമൂലം നാശം സംഭവിച്ച കോളനിക ളുടെ പുനർ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പാലക്കാട് ജില്ലയിലെ ആദ്യ ഐഡിയൽ ലാബ് കോട്ടായി ഹയർ സെക്കന്ററി സ്കൂളിൽ മന്ത്രി എ

ഒന്നരക്കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലാബിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾക്ക് അത്യാധുനിക ശാസ്ത്ര പരീക്ഷണ ഉപകരണങ്ങൾ ഒരുക്കി യിട്ടുണ്ട് കോഴിക്കോട് മേപ്പയ്യൂർ പുലപ്രക്കുന്ന് കോളനിക്കാർക്ക് ആറുമാസത്തിനകം വീട് നിർമ്മിച്ച് നൽകുമെന്ന് മന്ത്രി ടി

പി സ്കൂളിൽ പട്ടയം വിതരണം ചെയ്യുക യായിരുന്നു മന്ത്രി

പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കോഴിക്കോട് അത്തോളി ഗവൺമെന്റ് ഹയർ സെക്കന്ററി സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മന്ത്രി സി

പ്രളയ പുനരധിവാസത്തിൽ സഹകരണ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചെന്ന് മന്ത്രി എം

കെയർ ഹോം പദ്ധതി ഏറ്റെടുത്ത് നടപ്പാക്കിയ സഹക രണ സംഘങ്ങളുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്

നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ഇടുക്കി എസ് പി യെയും കട്ടപ്പന ഡി

പിയെയും സംരക്ഷിക്കുന്ന നിലപാട് ഇടത് ഗവൺമെന്റിന് ചേർന്നതല്ലെന്ന് സി

ഐ ജില്ലാ സെക്രട്ടറി കെ

ശിവരാമൻ തൊടുപുഴയിൽ പറ

പിയുടെ നിർദ്ദേശ പ്രകാരമാണ് രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് അറസ്റ്റിലായ പൊലീസുകാർ മൊഴി നൽകിയിട്ടുണ്ട്

കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ നിന്ന് പിന്തള്ള പ്പെട്ട ഒരിടത്തും അവർക്ക് തിരിച്ചെത്താനായിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ക്കെ സുരേന്ദ്രൻ പറഞ്ഞു കേര ളത്തിലും ഇനിയൊരു തിരിച്ചുവരവ് അവർക്കുണ്ടാവില്ല ബംഗാളിന്റെ വഴിയേയാണ് സംസ്ഥാനത്തെയും രാഷ്ട്രീയം നീങ്ങുന്നത്

പി ജില്ലാതല അംഗത്വ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ